പൂർത്തിയാകാതെ വോട്ടെടുപ്പ് സാധ്യമല്ലെന്ന് ഗവൺമെന്റ്

സുരക്ഷിതമായി ഇന്ത്യയിൽ തിരിച്ചെത്തിക്കാനുള്ള ഊർജജിത നടപടികൾ തുടരുമെന്ന് കേന്ദ്രം

ഇടപെടണമെന്ന് പ്രതിപക്ഷനേതാവ് സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇന്ന് മഴ വ്യാപകം

വനിതാവിഭാഗം സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പി

അതിനിടെ ഗവർണ്ണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി കുമാരസ്വാമി സുപ്രീംകോടതിയെ സമീപിച്ചു കോൺഗ്രസ്സും ഗവൺമെന്റിനെ നിലനിർത്താനുള്ള നടപടിയുമായി മുന്നോട്ടുപോവുകയാണ് കർണ്ണാടകത്തിന്റെ ചുമതലയുള്ള എ ഐ

സി ജനറൽ സെക്രട്ടറി കെ

രാജ്ഭവനെ ബിജെപി ഓഫീസായിക്കുറ്റു്ന്ന സമീപനമാണ് ഗവർണ്ണർ വാജുഭായി വാലയുടെ നട്പ്ടിക്കയന്ന് ശ്രീ

സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രതിസന്ധി സംബന്ധിച്ച് കോൺഗ്രസ്സ് തൃണമൂൽ കോൺഗ്രസ്സ് പാർട്ടികൾ പാർലമെന്റിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു കുൽഭൂഷൺ ജാദവ് പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന ഇന്ത്യയുടെ മുൻ നാവിക ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദവിന് തദ്ദേശനിയമമനുസരിച്ചുള്ള നയതന്ത്ര പരിരക്ഷ പാകിസ്ഥാൻ നൽകും വിയന്ന ഉടമ്പടി പ്രകാരമുള്ള നയതന്ത്ര പരിരക്ഷയ്ക്ക് താൻ അർഹനാണെന്ന് കാണിച്ച് കുൽഭൂഷൺ ജാദവ് നേരത്തേ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദിച്ചിരുന്നു

കുൽഭൂഷൺ ജാദവ് കേസിൽ അന്താരാഷ്ട്ര കോടതിവിധി നടപ്പാക്കണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ ശക്തമായി തുടരുമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിന്റെ ഇരുസഭകളിലും വ്യക്തമാക്കി

കോളേജ് ചെന്നിത്തല യൂണിവേഴ്സിറ്റി കോളേജ്ട് വിഷയത്തിൽ ഗവർണർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷം പിഎസ്സി നിയമനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു യൂണിവേഴ്സിറ്റി കോളേജ് വിഷയത്തിൽ ഗവർണറെ സന്ദർശിച്ചശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെയും പിഎസ്സിയുടേയും വിശ്വാസൃത നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്

സിൻഡിക്കേറ്റ് ഉപസമിതി കേസ് അട്ടിമറിക്കാനും പ്രതികളെ രക്ഷിക്കാനുള്ള മാർഗമാണ് സിപിഐയുടെ അംഗങ്ങളെപ്പോലും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം ഗവർണറോട് സംസാരിച്ചതായും വിഷയങ്ങൾ ഗൌരവമായി കാണുകയാണെന്ന് ഗവർണർ അറിയിച്ചതായും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി

ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു

ഒരു കോടിക്കു മേൽ പണം പിൻവലിച്ചാൽ രണ്ടുശതമാനം നികുത്തി ഈടാക്കുമെന്ന നിർദ്ദേശം മറികടക്കാൻ ഒന്നിലേറെ അക്കൌണ്ടുക്ളിൽ നിന്ന് പണം പിൻവലിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു

അഞ്ചു ശതമാനത്തിനുമേൽ ജി

ടി ചുമത്തുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വിലയുടെ ഒരു ശതമാനം സെസ് നൽകണം വിലക്കയറ്റമുണ്ടാകാത്ത തരത്തിലാണ് സെസ് ക്രമീകരണം

സി പി തൃണമൂൽ കോൺഗ്രസ്സ് സി

ഐ എന്നീ രാഷ്ട്രീയ കക്ഷികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സുനിൽകുമാർ മറയൂർ ശർക്കരക്കു പിന്നാലെ വട്ടവട കാന്തല്ലൂർ മേഖലയിലെ വെളുത്തുള്ളിക്കും ഭൌമ സൂചിക പദവ്പു ലൂടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി

ഗുണനിലവാരമുള്ള വിളകൾ ഓരോ പ്രദേശത്തിന്റെ തനത് വിളകളായി നില നിൽക്കണമെന്നും ക്ച്ചപ്പെട്ട വിപണിയും കർഷകർക്ക് ലാഭകരമായി കൃഷിയിറക്കുന്നതിനുള്ള സാഹചര്യവും ഒരുക്കുമെന്നും മന്ത്രി ഇടുക്കി കാന്തല്ലൂർ കോവിൽ കടവിൽ പറഞ്ഞു

കണ്ണൂർ കാസർകോട് കോഴിക്കോട് ജില്ലകളിൽ തീരമേഖലകളിലും ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലുമാണ് കാര്യമായ മഴ ലഭിച്ചത് പൂഞ്ഞാറിൽ ഉരുൾപൊട്ടി

ഇന്നും നാളെയും കേരളതീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിൽ മലയോരമേഖലയിൽ ഇന്നലെ മുതൽ നല്ല മഴ ലഭിച്ചു

ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴ ഇന്നും തുടരുന്നു താഴ്ന്ന മേഖലയിൽ വെള്ളം കയറി

കുട്ടനാട്ടിലും കനത്ത മഴ തുടരുകയാണ് ആലപ്പുഴ തീരത്ത് ചാകരയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിനിടയിലാണ് മഴ ശക്തമായത് ഇതോടെ ചാകരസാദ്ധ്യത മങ്ങി വറുതിക്കാലത്ത് നല്ല കോള് പ്രത്തീക്ഷിച്ച മീൻപിടുത്തക്കാർ നിരാശയിലായി

തൃശൂർ ജില്ലയിൽ പ്പ്കാടുങ്ങല്ലൂർ തീരദേശമേഖലയിൽ കടൽ പ്രക്ഷുബ്ദമാണ്

എൽ

സി കനാലിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉടൻ തുറക്കും പരിസരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

പെരുവന്താനം ആമലഗിരിയിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് തിട്ടയിൽ ഇടിച്ചു അപകടമുണ്ടായി

കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലെ പാബ്ല ഡാമിന്റെ ഷട്ടർ തുറന്നു കല്ലാർകുട്ടി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തിയാർജ്ജിച്ചു കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ രാവിലെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്

ദുരന്തനിവാരണ ലഘൂകരണ വിഭാഗത്തിലെ വിദഗ്ദ്ധൻ ഫഹദ് മർസൂഖ് ആകാശവാണിയോട്

എറണാകുളം പ്രി അങ്കമാലി അതിരൂപതയുടെ ഭരണച്ചുമതല തിരികെ നൽക്ടിയതിലും സഹായമെത്രാന്മാരെ പുറത്താക്കിയതിലും പ്രതിഷ്ട്രേധിച്ചാണ് ഫാദർ ജോസഫ് പാറേക്കാട്ടിലിന്റെ നേതൃത്വിത്തിൽ ഇന്നലെ സമരം ആരംഭിച്ചത് ബാഡ്മിന്റൺ ഇന്തോനേഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാവിഭാഗം സിംഗിൾസ് കാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ പി

നടന്ന പ്രീ കാർട്ടറിൽ ഡെൻമാർക്കിന്റെ മിയ ബ്ലിച്ച് ഇന്നലെ ഫെൽറ്റിനെ യാണ് സിന്ധു തോൽപ്പിച്ചത്

വിരാട് കോഹ്ലിയും മഹേന്ദ്രസിങ്ങ് ധോണിയും ടീമിലുണ്ടാകുമോ എന്ന ചർച്ചകൾക്കിടെയാണ് യോഗം മാറ്റിയത് ഇന്ന് യോഗം ചേരാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഹജ്ജ് ഈ വർഷത്തെ കരിപ്പൂർ ഹജ്ജ് ക്യാമ്പ് സമാപന സംഗമം ഇന്ന് നടക്കും വൈകിട്ട് ഹജ്ജ് ഹൌസിൽ മന്ത്രി കെ

ജലീൽ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അറിയിച്ചു

പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളിന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയുയർത്തി